കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും അനുവദിക്കരുതെന്ന് കേന്ദ്ര ആഭ്യൂന്തിരുമന്ത്രി അമിത്ഷാ

മഹാരാഷ്ട്രയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർധിക്കുന്നു

രാജ്യത്തെ നിലവിലെ ഭക്ഷ്യധാനൃ ശേഖരം ആഭൃന്തരമന്ത്രാലയം അവലോകനം ചെയ്തതായി ജോയിന്റ് സെക്രട്ടറി പുണ്യശൈല ശ്രീവാസ്തവ അറിയിച്ചു നിലവിൽ രാജ്യത്ത് ആവശ്യമായ തോതിൽ ഭക്ഷൃധാനൃ ശേഖരമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

ദേശീയ ഭക്ഷൃസുരക്ഷാ നിയമത്തിന്റെ കീഴിലുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ സൌജനൃം ലഭ്യമാണ് ഉത്തർപ്രദേശ് ബിഹാർ തെലങ്കാന അസം ഹിമാചൽ പ്രദേശ് മേഘാലയ സിക്കിം ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര ഗുജറാത്ത് കേരളം മിസോറാം സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ പദ്ധതി നടപ്പാക്കി തുടങ്ങി

പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജനയ്ക്കു കീഴിലാണ് രോഗികൾക്കും മുതിർന്ന പൌരർക്കും അവശൃ സേവനങ്ങളും മരുന്നുകളും വീട്ടുപടിക്കൽ എത്തിക്കുന്നത് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രത്തിലെ സ്വസ്ത് കെ സിപാഹി എന്ന് അറിയപ്പെടുന്ന ഫാർമസിസ്റ്റുകൾക്കാണ് ഇതിന്റെ ചുമതല

ലോക്സഭ രാജ്യസഭ ്സെക്രട്ടറിയേറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയെ പാർലമെന്ററി കാർച്ചുമന്ത്രി പ്രഹ്ളാദ് ജോഷി സ്വാഗതം ചെയ്തു

മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും തിരിച്ചും വൈറസ് ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് രാജ്യത്തെ മൃഗശാലകൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര മൃഗശാല അതോറിറ്റിയും മുന്നറിയിപ്പു നൽകി

പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ സജ്ജീകരിച്ച പി

ബി ഫാക്ട് ചെക്ക് സംവിധാനത്തിലൂടെയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്

ഓരോ വർക്ക് ഷോപ്പുകളിലും പരമാവധി എട്ട് ടെക്നീഷ്യൻമാർ മാത്രമേ പാടുള്ളു

അംഗീകൃത ഇലക്ട്രീഷ്യന്മാർക്ക്അറ്റകുറ്റപ്പണികൾക്കായി വീടുകളിൽ പോകാൻ ആനുമതിയുണ്ടെന്നും സർക്കാർ അറിയിച്ചു കോവിഡ് ആരോഗൃമന്ത്രി കോവിഡ് പ്രതിരോധത്തിനായി രോഗബാധിത മേഖലകളിൽ സാമൂഹ്യാടിസ്ഥാനത്തിലുള്ള നിയന്ത്രണമാണ് നടപ്പാക്കി വരുന്നതെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ പറഞ്ഞു

ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടെ സൌകര്യാർത്ഥം ഇത്തരം സെന്ററുകൾ ആരംഭിക്കാനുള്ള അനുമതിയാണ് ഐ

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

രാജ്യത്തെ ആകെ രോഗ ബാധിതരുടെ എണ്ണം അയ്യായിരം കടന്നു

മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും അടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർധിക്കുകയാണ്

തമിഴ്നാട്ടിൽ ഇന്ന് ഒരു കോവിഡ് രോഗി മരിച്ചതോടെ ഈ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം എട്ടായി

ഇതോടെ തമിഴകത്തെ കോവിഡ് ഹോട്ട്സ്പോട്ടായി ചെന്നൈ മാറി ന്യൂഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി നഴ്സിനുകൂടി കൊറോണ സ്ഥിരീകരിച്ചതോടെ വൈറസ് ബ്ദ്യാധിച്ച മലയാളി നഴ്സുമാരുടെ എണ്ണം ഡൽഹിയിൽ പത്തുടിയി

അമേരിക്കിയിലാണ് കൂടുതൽ മരണം

അമേരിക്കയിൽ കൊറോണ വൈറസ് ബാധിച്ച് ചികിത്സയിലായിരുന്ന പ്രശസ്ത പോപ്പ് ഗായകൻ ജോൺ പ്രൈനും ഇന്ത്യൻ അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ ബ്രാം കഞ്ചിബോട്ലയും മരിച്ചു

ഇതേസമയം രണ്ടു മാസം നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഒരു കോവിഡ് മരണം പോലും ചൈനയിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്തില്ല

കഴിഞ്ഞ ദിവസങ്ങളിൽ പുതുതായി രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് നിയന്ത്രണങ്ങളിൽ നേരിയ തോതിൽ ഇളവ് വരുത്തിയെങ്കിലും പരിശോധനകൾ തുടരും

കാസർകോട് നാലും കണ്ണൂരിൽ മൂന്നും കൊല്ലം മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്

എം ഡി ആർ എഫ് അക്കൌണ്ടുകളിൽ ലഭിച്ച തുക ഈ പുതിയ അക്കൌണ്ടുകളിലേക്ക് മാറ്റും

മുന്നീർ അദ്ധ്യക്ഷനായ സമിതി റിപ്പോർട്ട് യു ഡി

സംസ്ഥാന സർക്കാരിന്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് കർണ്ണാടക നിലപാടിൽ മാറ്റം വരുത്തിയത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് പ്രതിനിധി പി

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു

ലോക്ക്ഡൌണും നിരോധനാജ്ഞയും ലംഘിക്കുന്ന വർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ല അധികൃതർ അറിയിച്ചു

വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു